പാർലമെന്റ് നടപ്പ് സമ്മേളനം അടുത്ത മാസം ഏഴ് വരെ നീട്ടി

രമേഷ്കുമാർ രാജ്യം ഇന്ന് കർഗിൽ വിജയദിവസ് ആഘോഷിക്കുന്നു

സു നിൽകുമാർ ഏഴാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ്ങ് മത്സരങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം ങ്ങ ൽ മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കി

കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഡിഎംകെ സമാജ്വാദി പാർട്ടി അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്കിനിടെ ശബ്ദവോട്ടോടെയാണ് സഭ ബിൽ പാസാക്കിയത് മൂന്ന് വട്ടം മൊഴി ചൊല്ലി മുത്തലാഖിലൂടെ വിവാഹബന്ധം വിച്ഛേദിക്കുന്ന ഭർത്താവിനെ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ വൃവസ്ഥ ചെയ്യുന്ന ബില്ലിൽ പ്രതിപക്ഷം ഒട്ടേറെ ഭേദഗതി കൾ അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒറ്റയടിക്ക് തലാക്ക് ചൊല്ലുന്നതിനെയാണ് നിരോധിക്കുന്നതെന്നും മറ്റ് തരത്തിലുള്ള തലാക്കുകളെ നിരോധിക്കൂന്നില്ലെന്നും നിയമമന്ത്രി വൃക്തമാക്കി ലിംഗസമത്വവും നീതിയും ഉറപ്പുവരുത്താനാണ് നിയമ മെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപ്പക്ഷ പാർട്ടികൾ ബില്ലിനെ ശക്ത മായി എതിർത്തു ബില്ലിലെ വൃവസ്ഥകൾക്കെതിരെ പ്പി

കുഞ്ഞാലിക്കുട്ടിയും കെ മുരളീധരനും എൻ

പ്രേമചന്ദ്രനും കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി വിവരാവകാശ നിയമ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീ കാരം ലോക്സഭ തിങ്കളാഴ്ച്ച പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ശബ്ദവോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി വരെ എത്തിയ നാടകീയ സംഭവ ങ്ങൾക്കൊടുവിലാണ് ബിൽ സഭ പാസാക്കിയത് ബിൽ സെലക്റ്റ് കമ്മറ്റിക്ക് അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സഭ വോട്ടിനിട്ട് തള്ളി

വിവരാവകാശ കമ്മീഷണർമാ രുടെ ശമ്പളവും പ്രവർത്തന കാലാവധിയും ഗവൺമെന്റിൽ നിക്ഷി പ്തമാക്കുന്നതാണ് ഭേദഗതി പാർലമെന്റ് നടപ്പ് സമ്മേളനം അടുത്ത മാസം ഏഴ് വരെ നീട്ടി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററികാര്യ മന്ത്രിസഭാ സമിതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്

കേന്ദ്രഗവൺമെന്റിന്റെ ജലശക്തി അഭിയാൻ പദ്ധതിയിൽ ഇടുക്കി ജില്ലയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി കേന്ദ്ര മന്ത്രി ഗജേന്ദ്ര സിങ്ങ് ഷെഖാവത്തിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു നിലവിൽ കേരളത്തിൽ നിന്നും പാലക്കാടും കാസർകോടുമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ പ്രകൃതി ദുരന്തവും പ്രളയവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഉണ്ടാക്കിയതെന്നും കുടിവെള്ളത്തിന്റെ ഉറവിടം പോലും മാറിപോയ സ്ഥിതിയാണ് മിക്കവാറും ഇടങ്ങളിൽ ഉള്ളതെന്നും ഡീൻ കുര്യാ ക്കോസ് നിവേദനത്തിൽ അറിയിച്ചു തലശ്ശേരി വടകര കൊയിലാണ്ടി റയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് നടപടി ആവശ്യപ്പെട്ട് കെ മുരളീധരൻ എംപി റയിൽവേ മന്ത്രി പിയൂഷ് ഗ്നോയലിന് നിവേദനം നൽകി തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് പരിസ്ഥിതി സൌഹൃദ റയിൽവേ പാത യാഥാർഥൃമാക്ക ണമെന്നും എംപി ആവശ്യപ്പെട്ടു കർണാടകയിൽ കുമാരസ്വാമി ഗവൺമെന്റിന് പിന്തുണ പിൻവ ലിച്ച മൂന്ന് വിമത എംഎൽഎമാരെ സ്പീക്കർ കെ

രമേഷ്കുമാർ അയോഗൃരാക്കി രമേഷ് ജാർക്കിഹോളി മഹേഷ് കുമത്തല്ലി കക്ഷി രഹിത എംഎൽഎയും മുൻ മന്ത്രിയുമായ എ

ശങ്കർ എന്നിവ രെയാണ് അയോഗ്യരാക്കിയത് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യയുടെയും കെപിസിസി പ്രസിഡന്റ് ദിനേശ് ഗുണ്ടുറാവുവിന്റേയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി

രാജ്യം ഇന്ന് കർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു

കർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ആദരാഞ്ജലികളർപ്പിക്കും

റീബിൽഡ് കേരളയുടെ ഭാഗമായി സംസ്ഥാനത്തെ അഞ്ച് പാരി സ്ഥിതിക മേഖലകളാക്കി തിരിക്കുമെന്ന് മന്ത്രി വി

കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തൃശൂ രിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെ ജില്ലാതല ക്രോഡീകരണവും കാർഷിക സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒരേ രീതിയിലുള്ള മണ്ണിന്റെ ഘടന ജലലഭൃത കാലാവസ്ഥ മറ്റ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവയാണ് മേഖലകൾക്ക് അടി സ്ഥാനമാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു

ഇതിന്റെ അടിസ്ഥാന ത്തിൽ ഓരോ മേഖലയിലും എന്ത് കൃഷി ചെയ്യാം എന്ത് കൃഷി ചെയ്യരുത് എന്ന് മാർഗരേഖ തയ്യാറാക്കും ഓരോ പ്രദേശത്തിനും തനതായ സൂക്ഷ്മതലത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ കൃഷിയിൽ കൊണ്ടുവരും ഇതിനായി വിദ്ഗധ സമിതിയെ നിയോ ഗിച്ചതായും മന്ത്രി അറിയിച്ചു

ഫാറൂഖ് കോളെജ് സ്വദേശി റഷീദ് എന്ന ഉണ്ണികൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ വഞ്ചിയൂരിൽ നാല് പേരെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്

മലബാർ റിവർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച ഏഴാമത് അന്താ രാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ് മത്സരങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് പുലിക്കയത്ത് തുടക്കമാകും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും കോടഞ്ചേരി ചാലിപ്പുഴ തിരുവമ്പാടി ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്തൃ അമേരിക്ക റഷ്യ ഇസ്രായേൽ മലേഷ്യ നേപ്പാൾ ഓസ്ട്രേലിയ ഇറ്റലി ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി നൂറോളം താരങ്ങൾ വിവിധയിന ങ്ങളിൽ മാറ്റുരക്കും സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഡ്ചഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം കൌൺസിലും സംയുക്തമായാണ് ഏഷ്യയിലേ തന്നെ ഏറ്റവും വലിയ കയാക്കിങ്ങ് സംഘടിപ്പിക്കുന്നത്

തൃശൂർ സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ്

അഭിരാമി ബ്രോൺസ് മെഡലും നേടി വയനാട് അമ്പലവയലിൽ മർദ്ദനത്തിനിരയായ യുവതിയെ പൊലീ സ് കണ്ടെത്തി തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയാണ് യുവതി

യുവതിയെയും സുഹൃത്തിനെയും പ്രതി സജീവാനന്ദൻ ലോഡ്ജിൽ എത്തി ശല്ല്യപ്പെടുത്തിയെന്ന് യുവതി പൊലീസിനോട് പറഞ്ഞു ഇരുവരും എതിർത്തപ്പോൾ പിന്തുടർന്ന് ആക്രമിക്കുകയാ യിരുന്നുവെന്ന് യുവതി അറിയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് യുവതിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കും കഴിഞ്ഞ തിങ്കളാഴ്ച്ച യായിരുന്നു നടുറോഡിൽ വച്ച് യുവതിയെ മർദ്ദിച്ചത് തെന്മല ഡാമിൽ നിന്നും കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കു മായി കൂടുതൽ വെള്ളമെത്തിക്കാൻ ശാസ്ത്രീയ രീതികൾ അവലം ബിക്കുമെന്ന് മന്ത്രി കെ

നിയമസഭാ സമി തിയുടെ നേതൃത്വത്തിൽ നടത്തിയ തെന്മല ഡാം സന്ദർശനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ ഇറിഗേഷൻ കൃഷി വനം ടൂറിസം വകുപ്പ് ഉദ്യോ ഗസ്ഥരുടെ യോഗം ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു

ഷാനവാസ് അറിയിച്ചു ഡാം പക ൽ സമയത്ത് മാത്രം തുടന്ന് വിടാനും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു

ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം നീണ്ടകര ഹാർബറിൽ നടപ്പാക്കിയ ശുചിത്വ സാഗ്രം പദ്ധതി എല്ലാ തുറമുഖ ങ്ങളിലേക്കും വൃാപിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു

കടലിൽ അടിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മത്സ്യ സമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യ മിട്ട പദ്ധതിക്ക് ഐകൃരാഷ്ട്രസഭയുടേയും ലോകാരോഗൃ സംഘട നയുടേയും അനുമോദനവും ലഭിച്ചിരുന്നു മത്സൃബന്ധന വള്ളങ്ങളുടെ ലൈസൻസ് ഫീ പത്ത് മടങ്ങായി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് നടപടി അംഗീകരിക്കാനാവില്ലെന്നും അടി യന്തിരമായി പിൻവലിക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാ ഹികൾ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു തീരുമാനം റദ്ദാക്കിയില്ലെങ്കിൽ തീരദേശ മേഖലയിലെ യുവാക്കളെ അണിനിരത്തി യൂത്ത് ലീഗ് ശക്ത മായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കൊച്ചിയിൽ ഹൌസ് ബോട്ടിന്റെ ലോഞ്ചിങ്ങും ക്രൂയിസ് ടെർമി നലിന്റെ ഉദ്ഘാടനവും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹിച്ചു വിനോദ സഞ്ചാര രംഗത്തേക്ക് കടന്നുവരുന്ന എല്ലാ സംരംഭകർക്കും ഗവൺമെന്റ് പൂർണ്ണ സഹകരണം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു

കായക്കൊടി കെ

എസ് ഹയർസെക്കന്റി സ്കൂൾ പ്രിൻസിപ്പൽക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മാനേജർക്ക് നിർദേശവും നൽകി റീജ്യനൽ ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി പരീക്ഷകളുടെ നടത്തിപ്പിന് പകരം ചീഫ് സൂപ്രണ്ടുമാരെ നിയോഗിചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ അഞ്ചു പേർക്ക് കൂട്ടി ഡ്രെങ്കിപ്പനി സ്ഥിരീ കരിച്ചു

ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പി ക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പിഎസ്സി പരീക്ഷയിൽ തട്ടിപ്പ് കാണിച്ചവരെ വെള്ളപൂശാനാ ണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും സിബിഐ അന്വേഷണം മാത്രമേ സത്യം വെളിച്ചത്തുകൊണ്ടു വരൂ എന്നും കോൺഗ്രസ് നേതാവ് പി

പിഎ സ്സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കു ന്നതെന്ന് അദ്ദേഹം മലപ്പുറത്ത് ആരോപിച്ചു

സംസ്ഥാനത്തു ക്രിസ്തൃൻ സമുദായത്തിന്റെ വിവാഹം സംബന്ധിച്ച് രണ്ട് നിയമങ്ങളാണ് പ്രാബലൃത്തിലുള്ളതെന്ന് കമ്മീഷൻ കണ്ടെത്തി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പ്രതിദിന സർവ്വീസ് ആരംഭിച്ചു ഗോ എയർ കമ്പനിയാണ് സർവ്വീസ് നടത്തുന്നത്

സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന പേരിൽ പാലിയേറ്റിവ് വാർഡുതല നാട്ടുകൂട്ടം രൂപിക്കിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക